ഭീകര സംഘടനകളെയും അവയുടെ തലവന്മാരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള ശ്രമം തുടരുമെന്ന് ഇന്ത്യ

ജയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ച യു എൻ നടപടി ഈ ദിശയിലെ ഒരു സുപ്രിക്ടാന ചുവട് വയ്പാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ർവീഷ്കുമാർ പറഞ്ഞു

ഇന്ത്യയുടെ നിലപാടിന്റെയും ഇന്ത്യ ദ്രനല്കിയ തെളിവുകളുടെയും ശരിയായ പ്രതിഫലനമാണ് യു

ഭീകരർക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടങ്ങളുടെ പരിണിത ഫലമാണ് യു എൻ നടപടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ജയ്പൂരിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അന്താരാഷ്ട്ര സമൂഹം യു

സ്വത്തുക്കളുടെ മരവിപ്പിക്കൽ യാത്രാ നിരോധനം ആയുധ വില്പനയിലെ നിരോധനം എന്നീ കാര്യങ്ങൾ നടപ്പാക്കാൻ എല്ലാ അംഗരാഷ്ട്രങ്ങളും ബാധ്യസ്ഥരാണെന്ന് യു

എൻ സുരക്ഷ സമിതി തീരുമാനത്തെ ഉപരാഷ്ട്രപതി എം

സുരക്ഷാ സമിതി ഇക്കാര്യത്തിൽ നടത്തിയ ആത്മാർത്ഥമായ ശ്രമങ്ങളെ ഉപരാഷ്ട്രപതി പ്രശംസിച്ചു ഭീകരവാദം അമർച്ച ചെയ്യുന്നതിൽ എല്ലാ രാജ്യങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത ശ്രീ

രാജ്യത്തുടനീളം വിവിധ രാഷ്ട്രീയ പാർട്ടീക്ളുടെ ഉന്നത നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമാണ് കൂടുതൽ വിവരങ്ങളുമായി ശ്രീലത മധ്യപ്രദേശിലെ രാജ്ഗാ നീച്ച് സെഹോർ എന്നിവിടങ്ങളിൽ ഇന്ന് ബി ജെ

ജാർഖണ്ഡിലെ സിംഡെഗയിലും രാജസ്ഥാനിലെ ജയ്പൂരിലും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുക്കും റെയ്ബറേലിയിൽ യു

എ

ജെ

ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ പാർട്ടി ചുമതലയുള്ള കേന്ദ്രമന്ത്രി ജെ

സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് പ്രതാപ് ഗാറിലും ലഖ്നൌവിലും വിവിധ പൊതുസമ്മേളനങ്ങളിൽ സംബന്ധിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏഴിൽ നാല് ഘട്ടങ്ങളിലേയും വോട്ടെടുപ്പ് നടന്നുകഴിഞ്ഞു

ന്യൂസ്ഡെസ്ക് ആകാശവാണി

രാവിലെ ഏഴു മണിക്ക് പകരം വോട്ടെടുപ്പ് അഞ്ചു മണിക്ക് ആരംഭിക്കണമെന്നാണ് ഹർജിക്കാരന്റെ ആവശ്യം

ഒരു കാ മോഹല്ല കമ്പാർ മേഖലയിലെ വസതിയിൽ വച്ച് സായുധരായ ഭീകരർ പോലീസുദ്യോഗസ്ഥനെ ആക്രമിക്കുകയായിരുന്നു എന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞു പരിക്കേറ്റ ഉദ്യോഗസ്ഥൻ ശ്രീനഗറിലെ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്

രക്ഷാപ്രവർത്തനം നടത്താൻ ഇന്ത്യൻ തീരസുരക്ഷാസേനയും നാവികസേനയും കപ്പലുകളും ഹെലികോപ്റ്ററുകളുമായി സദാ സജ്ജമാണ്

ഇന്ന് മുതൽ മൂന്ന് ദിവസത്തേക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകി കൃാബിനറ്റ് സെക്രട്ടറി പി

സിൻഹയുടെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണ സമിതി ഇന്നലെ ന്യൂഡൽഹിയിൽ വീണ്ടും യോഗം ചേർന്ന് സ്ഥിതിഗതികളും മുന്നൊരുക്കങ്ങളും വിലയിരുത്തി ആവശ്യമായ ഭക്ഷണം കുടിവെള്ളം മരുന്നുകൾ എന്നിവ കൃത്യസമയത്ത് എത്തിക്കണമെന്ന് ശ്രീ

റദ്ദാക്കപ്പെട്ടതും വഴിതിരിച്ച് വിട്ടതുമായ ട്രെയിനിലെ യാത്രക്കാർക്ക് ടിക്കറ്റ് തുക തിരിച്ച് നൽകുമെന്ന് റയിൽവേ അറിയിച്ചു ഹൌറ ചെന്നൈ സെൻട്രൽ കൊറോമണ്ടൽ എക്സ്പ്രസ് പാട്ന എറണാകുളം എക്സ്പ്രസ് ന്യൂഡൽഹി ബുദനേശ്വർ രാജധാനി എക്സ്പ്രസ് ഹൌറ ഹൈദരാബാദ് ഈസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് എന്നിവ റദ്ദാക്കപ്പെട്ട ട്രെയിനുകളിൽ ഉൾപ്പെടുന്നു

അടുത്ത മൂന്ന് ദിവസത്തേക്ക് ഉദ്യോഗസ്ഥർക്ക് അവധി അനുവദിക്കില്ലെന്നും റെയിൽവേ അറിയിച്ചു

ആർ

ആർ

ഇന്ത്യയുടെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റായ ജി എസ് എൽ വി

കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് നാല് ് മാസ്മായി മുഗൾ റോഡിലൂടെ ഗതാഗതം നിരോധിച്ചിരുന്നു

ഇരു ദിശകളിലേക്കും യാത്രാ വാഹനങ്ങൾ കടത്തിവിടാനാകും വരെ പൂഞ്ച് ഷോപ്പിയാൻ ഭാഗങ്ങളിൽ നിന്നായിരിക്കും യാത്രാ വാഹനങ്ങൾ അനുവദിക്കുക

എല്ലിൽ ഇന്ന് ഒരു മത്സരം രാത്രി എട്ടിന് മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ മുംബൈ ഇൻഡ്യൻസും സൺ റൈസേഴ്സ് ഹൈദരാബാദും ഏറ്റുമുട്ടും

ഓപ്പണർമാരായ ഡേവിഡ് വാർണറും ജോണി ബെയ്ർസ്റ്റോയുമില്ലാതെയാണ് സൺറൈസേഴ്സ് ഇന്നിറങ്ങുന്നത്

കാലാവസ്ഥ വ്യതിയാനത്തിനെതിരെ പോരാടാനുള്ള ൃത്ഥാർത്ഥ സമയമാണിതെന്ന് വിഷയത്തിൽ പ്രമേയം അവതരിപ്പിച്ചി പ്രതിപക്ഷമായ ലേബർ പാർട്ടി നേതാവ് ജെർമി കോർബിൻ് അഭിപ്രായപ്പെട്ടു

വിധി സംശയം ജനിപ്പിക്കുന്നതാണെന്ന് അറ്റോർണി ജനറൽ കെ

വേണുഗോപാൽ അറിയിച്ചു